വിവിധ ആശയങ്ങളോടുള്ള ബഹുമാനം നൂതന ആശയങ്ങൾ തുറന്ന കാഴ്ചപ്പാടുകൾ എന്നിവ ഭാരതീയ ചിന്താധാരയുടെ ഭാഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെ കേരള ഗവൺമെന്റ് സുപ്രീംകോടതിയെ സമീപിച്ചത് തന്റെ അനുമതിയോടെയല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ

ഖേലോ ഇന്ത്യ ഭാരോദ്വഹന മത്സരങ്ങളിൽ മഹാരാഷ്ട്രയ്ക്ക് മൂന്ന് സ്വർണം

കോഴിക്കോട് ഐ

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം വോയിസ് ഹിംസ ഭീകരവാദം ക്രോധം എന്നീവിയിൽ നിന്നും മാറ്റം ആഗ്രഹിക്കുന്ന ലോകത്തിന് ഇന്ത്യൻ ജീവിതരീതികൾ പ്രകാശം പകരുന്നതായും ശ്രീ

തർക്കങ്ങൾ ഒഴിവാക്കുന്നതിൽ ഹിംസയ്ട്ട്ടേതല്ല മറിച്ച് ചർച്ചകളുടെ പാതയാണ് ഇന്ത്യൻ രീതിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാൻ പാശ്ചാതൃർക്ക് പതിറ്റാണ്ടുകൾ വേ ിവന്നപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടാായിരുന്നുവെന്ന് ശ്രീ

ലോക ജനതയ്ക്ക് നിരവധി ആദർശങ്ങൾ പ്രദാനം ചെയ്ത ഇന്ത്യൻ ചിന്താധാരയ്ക്ക് ഇനിയും ഇതിനായി ധാരാളം സംഭാവനകൾ നൽകാനാകുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നൽകിയ സമാധാനത്തിന്റെ മൂലൃങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാർബൺ പുറംതള്ളുന്നതിന്റെ തോത് കുറയ്ക്കുന്നതിൽ രാജ്യം സ്വീകരിച്ചുവരുന്ന നടപടികളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രാജ്യത്തെ വനവിസ്തൃതിയിലും കടുവകളുടെ എണ്ണത്തിലുമുള്ള വർദ്ധനവിൽ പ്രധാനമന്ത്രി സന്തുഷ്ടി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത്തരം വിഷയങ്ങൾ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ചർച്ച് ചെയ്യേണ്ടതാണെന്ന് രക്ഷാസമിതിയിൽ പൊതു അഭിപ്രായമുയർന്നിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്താനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്നും ശ്രീ

ഇത്തരം ശ്ര്മങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറണമെന്നും വിദേശകാരൃവക്താവ് അഭിപ്രായപ്പെട്ടു

ഇത് പ്രോട്ടോക്കോളിന്റെയും മര്യാദയുടെയും ലംഘനമാണ് സംസ്ഥാനഗവൺമെന്റിന്റെ നടപടിയിൽ തനിക്ക് പ്രശ്നമില്ലെങ്കിലും എന്നാൽ തന്നെ വിവരം അറിയിക്കേണ്ടതായിരുന്നുവെന്നും കേരള ഗവർണർ പറഞ്ഞു ഗവർണർ റബ്ബർ സ്റ്റാമ്പല്ലെന്നും ശ്രീ

നിയമവിദഗ്ദ്ധരുമായി കൂടിയാലോചന നടത്തിയ ശേഷം വീണ്ടും ഗവർണറെ സമീപിക്കാനാണ് ഗവൺമെന്റ് നീക്കം

ഇത് രണ്ടാം തവണയാണ് ഈ ഓർഡിനൻസിൽ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിക്കുന്നത്

എട്ട് അംഗ രാഷ്ട്രങ്ങളിലെയും നാല് നിരീക്ഷക ര്യൂഷ്ട്രങ്ങളിലെയും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും റ്റ്ഷ്യ ചൈന പാകിസ്ഥാൻ കിർഗിസ്ഥാൻ കസാച്ച്സ്ഫാ്ൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ എന്നിവയാണ് ഇന്ത്യയ്ക്ക് പുറമേയുളള ഷാങ്ഹായ് അംഗരാഷ്ട്രങ്ങൾ

നിയമ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ട് ബീഹാറിലെ വൈശാലിയിൽ നടന്ന പൊതു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജെ പി സംഘടിപ്പിക്കുന്ന ബോധവത്കരണ പരിപാടിയുടെ ഭാഗമായിരുന്നു ബീഹാറിലെ പൊതു സമ്മേളനം കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഇരകളാക്കപ്പെട്ട നിരവധി പേർക്ക് നീതി ഉറപ്പാക്കാനാണ് നിയമത്തിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ശ്രീ

ദളിതർക്ക് നീതി ഉറപ്പുവരുത്തുന്നതിനെ ഗാന്ധിജി പോലും അനുകൂലിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം പൌരത്വ ഭേദഗതി നിയമത്തിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ വർഷം നടക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ബി

യു വും സംയുക്തമായി നേരിടുമെന്നും ശ്രീ

ഇരു പാർട്ടികളൂം തൃമ്മിൽ നല്ല ബന്ധമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

കുറ്റാരോപിതരെ നിയമത്തിന് മുന്നിൽ കൊുവരാൻ കോൺഗ്രസ് യാതൊരു താൽപര്യവും കാണിച്ചില്ലെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആരോപിച്ചു ധിൻഗ്ര കമ്മീഷൻ റിപ്പോർട്ടിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ വീഴ്ചയെക്കുറിച്ച് പരാമർശം ഉന്നെും ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു

ഐ ആർ മാത്രമാണ് സമർപ്പിച്ചതെന്നും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രമാണ് നിയമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാഥമിക വിവര റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഏഴു വർഷം വേിവന്നുവെന്നും ഇതിനെ തുടർന്നാണ് പ്രതികളെ കോടതി വെറുതെ വിട്ടതെന്നും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു

മെയ്ക്ക് ഇന്റു ഇന്ത്യ് പദ്ധതിയ്ക്ക് കീഴിൽ കേവലം ഒരു ഉല്പാദക കേന്ദ്രമായി മാത്രമല്ല പ്രതിരോധ ഉല്പന്നങ്ങളുടെ കയറ്റുമതി രാഷ്ട്രമായും ഇന്ത്യ മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ദേവപ്രയാഗ് ഋഷികേശ് പാതയിൽ സക്കിന്ദറിന് സമീപത്താണ് അപകടം നടന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഏഴാമത് സമ്മേളനം ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാധിപതൃത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണെന്നും സ്പീക്കർ പറഞ്ഞു

സി സി ഐ യുടെ കരാർ പട്ടികയിൽ നിന്ന് മുൻ ഇന്ത്യൻ നായകൻ എം

സി സി ഐ പ്രസിദ്ധീകരിച്ചത് അഞ്ചു കോടി രൂപ പ്രതിവർഷം ലഭിക്കുന്ന എ

പീതാംബരനെ തെരഞ്ഞെടുത്തു ഇന്ന് മുംബൈയിൽ ചേർന്ന എൻസിപി നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ചു തീരുമാനം കൈക്കൊണ്ട ത് സംസ്ഥാന അധ്യക്ഷ പദവി വഹിച്ചിരുന്ന തോമസ് ചാിയുടെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് എൽഡിഎഫ് ഗവൺമെന്റിലെ എൻസിപിയുടെ മന്ത്രിയായി എ

ശശീന്ദ്രൻ തുടരാനും ിയോഗം തീരുമാനിച്ചു